ഡി

സ്വകാര്യ വിവരങ്ങളും വിവരാവകാശ നിയമങ്ങളും വിവരാവകാശ നിയമത്തിലെ ഭേദഗതികൾ നിയമത്തിന്റെ നടപ്പാക്കൽ തുടങ്ങി വിവിധ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു

കമ്മീഷന്റെ പുതിയ വെബ്സൈറ്റിനു പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി തപാൽ സ്റ്റാമ്പും പ്രത്യേക തപാൽ കവറും പുറത്തിറക്കി ഇതോടനുബന്ധിച്ച് നാളെ മനുഷ്യാവകാശ മേളയും മനുഷ്യാവകാശം വിഷയമാക്കിയുള്ള തെരുവ് നാടകങ്ങളും സംഘടിപ്പിക്കും

എഫ് വിജയിച്ചപ്പോൾ ആറിടത്ത് യൂ

എഫും ഒരു സീറ്റ് ബി

ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ബി ജെ പി പിടിച്ചെടുത്തു

ജെ